തടസ്സരഹിതമായ അന്തർസംസ്ഥാന സഞ്ചാരം ഉറപ്പാക്കണമെന്ന് കേന്ദ്രം

രാജ്യത്ത് കോവിഡ് വ്യാപനം അത്തിരൂക്ഷം തുടർച്ചയായി രണ്ടാം ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണം രണ്ട്ട് ലക്ഷം കടന്നു

അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ പാകിസ്ഥാനെ ലക്ഷ്യമിട്ടാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യമന്ത്രി

ഐ

എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് ഇലെവൻ ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും

ഓക്സിജൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങളുടെ വിതരണത്തിന് തയ്യാറാക്കിയ പദ്ധതി പൂർണ്ണമായും പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് എഴുതിയ കത്തിൽ ആവശ്യപ്പെട്ടു

കേന്ദ്ര ആരോഗൃ സെക്രട്ടറി അജയ് കുമാർ ഭല്പയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഐസൊലേഷൻ കിടക്കകൾ ഓക്സിജൻ കിടക്കകൾ വെന്റിലേറ്ററുകൾ ഐ

യു എന്നിവയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ യോഗം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു മരണസംഖ്യ കുറയ്ക്കുന്നതിനും രോഗബാന നേരത്തെത്തന്നെ തിരിച്ചറിയുന്നതിനും കൃത്യമായ ആസൂത്രണം നടത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു ഛത്തിസ്ഗഡിലേയും ഉത്തർപ്രദേശിലെയും കോവിഡ് സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഛത്തിസ്ഗഡ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഒരുലക്ഷത്തിലധികം രോഗികളാണുള്ളത് ഉത്തർപ്രദേശിലെ ലക്നൌ കാൺപൂർ വാരാണസി പ്രയാഗ് രാജ് എന്നീ ജില്ലകളിലാണ് ഏറ്റവും അധികം കോവിഡ് ബാധിതരെന്നും യോഗം വിലയിരുത്തി

രാജ്യത്ത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഓക്സിജന്റെ ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള അവലോകന യോഗത്തിലാണ് പ്രധാനമന്ത്രി ഓക്സിജൻ ലഭൃതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിയത് ഓക്സിജൻ ലഭൃത ഉറപ്പാക്കുന്നതിന് വിവിധ മന്ത്രാലയങ്ങൾ സംസ്ഥാന ഭരണകൂടങ്ങൾ എന്നിവ തമ്മിലുള്ള സഹകരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

അത്തരം ആശുപത്രികളുടേയും പ്രത്യേക കോവിഡ് ബ്ലോക്കുകളുടേയും വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് നല്കാനും നിർദ്ദേശമുണ്ട് രാജ്യത്തൊട്ടാകെ കോവിഡ് കേസുകളിലുണ്ടാകുന്ന വർദ്ധനവിനെ പിടിച്ചുകെട്ടുന്നതിന് കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ പിന്തുണ നടപടികളാണ് ആവശൃപ്പെടുന്നതെന്ന് ആരോഗൃ സെക്രട്ടറി ആവർത്തിച്ചു കോവിഡ് കേസുകൾക്ക് പ്രത്യേക പരിചരണം ഉൾപ്പടെയുള്ള ചികിത്സാ സേവനങ്ങൾ ലഭൃമാക്കുന്നതിന് ഈ പ്രത്യേകം സമർപ്പിത ആശുപത്രികളിലും ബ്ലോക്കുകളിലും പ്രത്യേക പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടായിരിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു

സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ചേർന്ന യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി യോഗി ആദിതൃനാഥാണ് തീരുമാനം പ്രഖ്യാപിച്ചത്

കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ ആയിരത്തിന് മുകളിൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്

ഇന്നും നാളെയുമായി രണ്ടര ലക്ഷം പേരെ കോവിഡ് പരിശോധനയ്ക്കു വിധേയരാക്കുമെന്ന് ഇന്നലെ നടന്ന അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചിരുന്നു മ്മുൻനിര തൊഴിലാളികൾ പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപ്പുഴക്കുന്നവർ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ ഹോട്ടലുകളിലും മറ്റും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ളവരിൽ പരിശോധന നടത്തും

ആറു ലക്ഷം പേരാണ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ചത്

ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ വിവിധ രാജ്യങ്ങളിലേക്ക് വിതരണത്തിനായി കയറ്റുമതി ചെയ്യപ്പെടുന്നുമുണ്ട് അതിനാൽ അമേരിക്കയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുവിന്റെ കയറ്റുമതി തടയരുതെന്ന് സെറം ചീഫ് എക്സിക്യൂട്ടിവ് അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസർ ജോ ബൈഡനോട് അഭ്യർത്ഥിച്ചു

ജയ്ശങ്കർ പറഞ്ഞു ഒരു റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് ഇന്തൃ ദീർഘനാളായി നടത്തുന്ന പ്രവർത്തനങ്ങളെ വില കുറച്ചു കാണിക്കുന്നതാണ് ഇത് പാക്കിസ്ഥാനെ ലക്ഷ്യമിട്ടാണെന്ന ആരോപണമെന്ന് ശ്രീ

അഫ്ഗാനിസ്ഥാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സാധ്യമായതെല്ലാം ഇന്ത്യ ചെയ്യുമെന്ന് ഉറപ്പുനൽകിയ വിദേശകാര്യമന്ത്രി തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന സമാധാനപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് അഫ്ഗാൻ പൌരന്മാരാണെന്ന് ഓർമ്മിപ്പിച്ചു

രാജ്യത്തിനകത്തും പുറത്തും സമാധാന്റ് ആഗ്രഹിക്കുന്ന അഫ്ഗാനിസ്ഥാനെ അയൽ രാജ്യങ്ങൾ സഹായിക്കണമെന്ന നിർദ്ദേശവും ശ്രീ

അഫ്ഗാനിസ്ഥാൻ ദേശീയ് സ്റ്റുർക്ഷാ ഉപദേഷ്ട്രാവ് ഹംദുള്ള മോഹിദ് ഇറാൻ വിദേശകാര്യമന്ത്രി ജാവേദ് സാരിഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടോസ് നേടിയ ചെന്നെബൌളിംഗ് തിരഞ്ഞെടുത്തു ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തി